ഇന്തൃയ്ക്ക് ബംഗളൂരുവിൽ തുടക്കം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു

പ്രേരക ശക്തിയാകുമെന്ന് പ്രിയർന്മന്ത്രി നരേന്ദ്രമോദി

കർഷകരുടെ പ്രതിഷേധം സംബന്ധിച്ച് സഭ ചർച്ച ചെയ്യും

ജെ പി ദേശീയ അധ്യക്ഷൻ ജെ

ദിവസത്തെ കേരള സന്ദർശനം ഇന്നു മുതൽ

ഐ എസ് എൽ ഫുട്ബോളിൽ ഇന്ന് കേരള ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും

കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് ഉദ്ഘാടനം ചെയ്തു

പ്രതിരോധ പ്പൂവസായ മേഖലയിലെ നിക്ഷേപത്തിന്റെയും പങ്കാളിത്ത്തിന്റെയും ആഗോള സാന്നിധൃവും ഇടപെടലും സൃഷ്ട്ടിക്കാ്ൻ എയ്റോ ഇന്ത്യയ്ക്ക് കഴിയുമെന്ന് ശ്രീ

ലോകത്തെ ഏറ്റവും വലിയ് ജനാധിപത്യ രാജ്യത്ത് ഏറ്റവും ശക്തമായ പ്രതിരോധ സമ്പദ്വ്യവസ്ഥയാക്കി മാറ്റ്സു് എയ്റോ ഇന്ത്യയ്ക്ക് സാധിക്കും

കോവിഡ് മാർഗ്ഗരേഖ പാലിച്ചാണ് പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുള്ളത്

ന്യൂസ് ഡെസ്ക് ആകാശവാണി

രാജ്വാന്തര രംഗത്ത് സഹകരണം മെച്ചപ്പെടുത്താൻ എയ്റോ ഇന്ത്യ മികച്ച അവസരം നൽകുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചു ഈ മേഖലകളിൽ മികച്ച ഭാവി മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങളാണ് രാജ്യത്ത് നടക്കുന്നത് ആത്മനിർഭർ ഭാരത് ദൌത്യത്തിന് ഇത് വലിയ പ്രേരക ശക്തിയാകുമെന്ന് ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു

ഇതിനായി ഇന്നത്തെയും നാളത്തെയും ചോദ്യോത്ത്ര വേളയും നാളത്തെ ശൂന്യവേളയും ഒഴിവാക്കി തീരുമാനങ്ങളോട് പ്രതിപക്ഷം യോജിക്കുന്നതായി രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവ് ഗുലാം നബി ആസാദ് വ്യക്തമാക്കി കർഷകരുടെ ഉന്നമനത്തിനായി സർക്കാർ നിരവധി നടപടികളാണ് കൈക്കൊണ്ടിട്ടുള്ളതെന്ന് ചർച്ചയ്ക്ക് തുടക്കമിട്ട ബി

അംഗം ഭുബനേശ്വർ കാലിത പറഞ്ഞു കർഷകരുടെ ഏത് പ്രശ്നവും ചർച്ച ചെയ്യാൻ സർക്കാർ തയാറാണ് കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാൻ സർക്കാർ സ്വീകരിച്ച നടപടികളെ ബി ജെ

ഇരിപ്പിടത്തിലേക്ക് മടങ്ങാൻ സഭാ അധ്യക്ഷൻ ആവശ്യപ്പെട്ടെങ്കിലും അവർ കൂട്ടാക്കിയില്ല തുടർന്ന് മൂന്നു പേരെയും സഭയിൽ നിന്ന് പുറത്താക്കി

ഇരട്ടിയാക്കാൻ ഇതുമൂലം കഴിഞ്ഞിട്ടുണ്ട്ട് മധ്യപ്രദേശ് ആന്ധ്രാ പ്രദേശ് ഹരിയാന അസം എന്നിവിട്ടുള്ളിൽ പരിശീലന പരീക്ഷണ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ സ്ഥാപിച്ചു

ഇത്തരം സംഭവങ്ങൾ അംഗീകരിക്കാനാകില്ലെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ രാജൃസഭയിലെ ശൂനൃവേളയിൽ വൃക്തമാക്കി

ചില അംഗങ്ങൾ സഭാ നടപടികൾ മൊബൈൽ ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് അധ്യക്ഷൻ ഈ നിർദ്ദേശം നൽകിയത്

ഒരു വർഷം നീളുന്ന ശതാബ്ദി ആഘോഷങ്ങൾ നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി ഉദ്ഘാടനം ചെയ്യും ചൌരി ചൌര സംഭവത്തിന്റെ സ്മരണയ്ക്കായി തപാൽസ്റ്റാമ്പും പ്രധാനമന്ത്രി പുറത്തിറക്കും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചടങ്ങിൽ പങ്കെടുക്കും സംസ്ഥാന വ്യാപകമായ ആഘോഷങ്ങൾ നാളെ ആരംഭിക്കും

പി അഖിലേന്ത്യാ അദ്ധ്യക്ഷൻ ജെ പി നദ്ദ ഇന്ന് ക്ട്ര്ളത്തിൽ ബിജെപി ്കോർ കമ്മിറ്റി യോഗത്തിലും എൻ

നദ്ദ സംബന്ധിക്കും

ആരോഗ്യ പ്രവർത്തകർക്കാണ് ആദ്യ ഘട്ടത്തിൽ പ്രതിരോധ വാക്സിൻ നൽകിയത് ഗുജറാത്തിലും പശ്ചിമ ബംഗാളിലും ഇന്നലെ കോവിഡ് മുൻനിര പോരാളികൾക്ക് വാക്സിൻ വിതരണം ആരംഭിച്ചു

എറണാകുളം ജില്ലയിലായിരുന്നു ഏറ്റവുട്ടുകൂടുതൽ വാക്സിൻ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്

ഫുട്ബോളിൽ ഇന്ന് കേരളാ ബ്ലാസ്റ്റേഴ്സ് മുംബൈ സിറ്റിയെ നേരിടും

ഇന്നലെ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് ബംഗളൂരു ഈസ്റ്റ് ബംഗാളിനെ തോല്പിച്ചു

വൃവസ്ഥകളോടെയാണ് ഈ ക്യേസിലും ്ജാമ്യം അനുവദിച്ചിട്ടുള്ളത്

ഇതിൽ എട്ട് അംഗങ്ങളും സൈന്യത്തിൽ നിന്നാണ്